പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കർ വിടവാങ്ങി

ദീപക് മിശ്ര ഇന്ന് പടിയിറങ്ങും

ന്യൂഡൽഹിയിൽ ഗാന്ധി സമാധിയായ രാജ്ഘട്ടിൽ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തും

ഇന്ന് അന്താരാഷ്ട്രതലത്തിൽ അക്രമവിരുദ്ധദിനമായി ആചരിക്കാൻ ഐകൃരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തു വിശദവിവരങ്ങളുമായി നന്ദകുമാർ

അന്താരാഷ്ട്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗ്രൂട്ടറെസും സമ്മേളനത്തിൽ പങ്കെടുക്കും വിദേശരാജ്യങ്ങളിലെ ആരോഗ്യ ശുചീകരണ വകുപ്പിലെ മന്ത്രിമാരും ബന്ധപ്പെട്ട മേഖലയിലെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് ഗാന്ധിജി സ്റ്റാമ്പുകളുടെയും അദ്ദേഹത്തിന്റെ പ്രിയഗീതമായ വൈഷ്ണവ ജനതോയുടെ സി ഡി പ്രകാശനവും ചടങ്ങിൽ നടക്കും കേരളത്തിലും ഗാന്ധിജയന്തി വിപുലമായി ആചരിക്കും

മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്വാതന്ത്ര്യസമരസേനാനികളായ പി ഗോപിനാഥൻ നായർ അഡ്

പ്രളയദൂരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി പുനസ്ഥാപനം ദുരിതത്തിലായവർക്ക് സേവനം പുനർനിർമാണം സാന്ത്വനം ശുചീകരണം എന്നിവയിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ഗാന്ധിജയന്തി വാരം ആചരിക്കുന്നത്

കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ ഇതിന്റെ ഭാഗമായി നടക്കുന്ന ശുചീകരണ യജ്ഞം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീദുള്ള ഉദ്ഘാടനം ചെയ്യും

ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ജ്ല്ലാത്ത്ല ഉദ്ഘാടനം മന്ത്രി ജെ മേഴ് സിക്കുട്ടിയമ്മ നിർവഹിക്കും

ഇന്നു പുലർച്ചെ ഒരുമണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

ബാലഭാസ്കറിന്റെ സംഗീതജീവിതത്തെ കുറിച്ച് നന്ദകുമാർ

അപകടത്തിന്റെ രൂപത്തിലെത്തിയ ദുർവിധി കവർന്നെടുത്തത് പകരം വെയ്ക്കാനില്ലാത്ത സംഗീത പ്രതിഭയെ ചെറുപ്രായത്തിൽ തന്നെ വയലിൻ വാദനത്തിൽ സവിശേഷമായ കഴിവ് പ്രകടിപ്പിച്ചിരുന്ന ബാലഭാസ്കർ ജീവിതം എന്നും വയലിനൊപ്പം ചേർത്തു വെച്ചു കാൽനൂറ്റാണ്ടുകാലം തന്റെ പ്രതിഭാശേഷി കൊണ്ട് ബാലഭാസ്കർ തിളങ്ങി നിന്നു

പതിനേഴാം വയസിൽ മംഗല്യപ്പല്ലക്ക് എന്ന സിനിമയ്ക്കാണ് ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ചത് നൂറുകണക്കിന് ആൽബങ്ങളും ബിഗ് ബാൻഡിന്റെ സ്റ്റേജ് ഷോകളും അദ്ദേഹത്തെ ജനപ്രിയനാക്കി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശാസ്ത്രീയുടെ സമാധിസ്ഥലമായ വിജയഘട്ടിലെത്തി പുഷ്പാഞ്ജലിയർപ്പിക്കും

ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്

അഹമ്മദാബാദിൽ വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി കോൺഗ്രസിന്റെ പ്രചരണം ഇന്ത്യയുമായി സൌഹൃദത്തിലല്ലാത്ത പാകിസ്ഥാനെ സഹായിക്കുകയാകും ഫലത്തിൽ ഉണ്ടാകുന്നത് ഫ്രാൻസിൽ നിന്നു വാങ്ങുന്ന റഫേൽ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി എന്ന ആരോപണം തെറ്റാണെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു

അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ജ്സ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നാളെ ചുമതലയേൽക്കും

പരിസ്ഥിതിയുടെ സുസ്ഥിര വികസനത്തിന് നൽകുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് ഐകൃരാഷ്ട്ര സംഘടന പുരസ്കാരങ്ങൾ നൽകുന്നത് ന്യൂഡൽഹി പ്രവാസി കേന്ദ്രത്തിൽ ഇരുനേതാക്കൾക്കും യു

എസ് തീർ സുജാത ശാർദൂൽ എന്നീ കപ്പലുകളാണ് അയക്കുന്നത് സിംഗപ്പൂരിലേക്ക് നീങ്ങുന്ന കപ്പലുകൾ അവിടെ നിന്നുമാണ് സുനാമി കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ പാലുവിലേയ്ക്ക് നീങ്ങുക

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബഞ്ചിന്റെയാണ് ഉത്തരവ് ജസ്റ്റിസ് എ

വിവിധ പാർട്ടികളുടെ വിശദവാദവും കോടതി കേട്ടിരുന്നു

വെള്ളിയാഴ്ച കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്

ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോയവർക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

നിലപാട് തുടർന്നാൽ ചൈനയുമായി ഒരുതരത്തിലുമുള്ള വാണിജൃ ഇടപാടുകൾ ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി

കഴിഞ്ഞ തവണത്തെ ടോപ് സ്കോറർ ഫെറാൻ കോറോമിനസ് ഗോവയ്ക്കായി ഇരട്ടഗോൾ നേടി

ഗോവയുടെ ആക്രമണ ഫുട്ബോളിനെ ശക്തമായി തിരിച്ചടിച്ചാണ് നോർത്ത് ഈസ്റ്റ് സമനിലനേടിയത്